പാകിസ്ഥാൻ ഭീകരതയുടെ പര്യായമായി മാറിയതായി പ്രധാനമന്ത്രി സൈനികരുടെ ജീവൃത്യാഗം വെറുതെയാകില്ലെന്ന് ആവർത്തിച്ച് ന്ദുരേന്ദ്ര മോദി

ഇന്ന് പി

സിന്ധു സൈന നെഹ്വാൾ പോരാട്ടം പുരുഷ വിഭാഗം ഫൈനലിൽ സൌരഭ് വർമ്മ ലക്ഷ്യാസെന്നിനെ നേരിടും

മഹാരാഷ്ട്രയിലെ എവത് മാലിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം

രാഷ്ട്ര പുരോഗതിയോടൊപ്പം സുരക്ഷയും ഉറപ്പ് വരുത്തുന്നതിൽ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് കശ്മീരിൽ അക്രമം അഴിച്ചുവിട്ടവർ രാജ്യത്തെ ഓരോ പൌരന്റേയും അമർഷം ഉടൻ തിരിച്ചറിയുമെന്ന് അദ്ദേഹം പറഞ്ഞു

തുടർന്ന് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു

മോദി നര്യേന്ദ്ര മോദി ഇന്ന് നിർവ്വഹിക്കും

ആഭ്യന്തര മന്ത്രി രാജ് നാഥ് സിംഗ് വിളിച്ചു ചേർത്ത യോഗത്തിൽ രാജ്യത്തെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിച്ചിരുന്നു പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ചും ഇക്കാര്യത്തിൽ ഗവൺമെന്റ് കൈക്കൊള്ളുന്ന നടപടികളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധൃക്ഷനായി ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സർവകക്ഷിയോഗം ചേരാൻ തീരുമാനമെടുത്തത് സംഭവത്തെ കുറിച്ച് രാജൃത്തെ പാർട്ടികളെ ധരിപ്പിക്കുന്നതിനും വിഷയത്തിൽ എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനും സർവ്വകക്ഷിയോഗം ചേരുമെന്ന് നേരത്തെ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരുന്നു

സ്വയം പ്രതിരോധത്തിനുള്ള ഇന്തൃയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നതായും തീവ്രവാദ പ്രവർത്തനങ്ങളെ നേരിടുന്നതിൽ രാജ്യത്തിന് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നതായും അമേരിക്ക വ്യക്തമാക്കി

ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൻ ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവ്വലിന്റെ ഫോണിൽ വിളിച്ചാണ് പിന്തുണ അറിയിച്ചത് ഭീകരർക്ക് സുരക്ഷിത താവളം ഒർമക്കുന്ന നിലപാടിൽ മാറ്റം വരുത്താൻ പാകിസ്ഥാനോട് തുടർന്നും ആപ്പശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

അതിനിടെ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധാഞ്ജലിയർപ്പിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം പ്രത്യേക വിമാനത്തിൽ ജമ്മുകശ്മീരിൽ നിന്ന് ന്യൂഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ എത്തിച്ച സൈനികർക്ക് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി രാജ്യത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചു നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സൈനികരുടെ ഭൌതികശരീരം ഏറ്റുവാങ്ങി

പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇത്തരം നീക്കങ്ങൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തില്ലെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ ജമ്മുകശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി

പുൽവാമ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന പാക് നിലപാടിനെ ന്യൂഡൽഹി തള്ളിക്കളഞ്ഞു ആക്രമണത്തിന്റെ ്ഉത്തരവാദിത്തം ഏറ്റെടുത്ത ജയ്ഷെ മുഹമ്മദും അതിന്റെ നേതൃത്വവും പാകിസ്ഥാനിലുള്ളവരാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ വ്യക്തമാക്കി തങ്ങളുടെ മണ്ണിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി അറിയില്ലെന്ന് പാകിസ്ഥാന് അവകാശപ്പെടാനാവില്ലെന്നും ശ്രീ

അന്താരാഷ്ട്ര തലത്തിൽ നിരവ്വധി തവണ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യമുയർന്നിട്ടും വിഷയത്തിൽ പാകിസ്ഥാൻ ഇതേവരെ ഒരുപ്പ് നട്പടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വൃക്തമാക്കി

വി വസന്തകുമാറിന്റെ ഭൌതിക ശരീരം ഇന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിക്കും കേന്ദ്ര മന്ത്രി അൽഫോൺസ് കണ്ണന്താനം മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇ പി ജയരാജൻ എന്നിവർ സംസ്ഥാന ബഹുമതികളോടെ ഭൌതീകശരീരം ഏറ്റുവാങ്ങി അന്ത്യോപചാരം അർപ്പിക്കും

പി സ്കൂളിൽ പൊതു ദർശ്ശനത്തിന് വെയ്ക്കുന്ന ഭൌതിക ശരീരം തൃക്കൈപറ്റ വിലേജിലെ മുക്കംകുന്നിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും

റോബിൻ വടക്കുംചേരി കുറ്റക്കാരനെന്ന് തലശ്ശേരി പോക്സോ കോടതി

കേസിൽ പ്രതികളായിരുന്ന മൂന്നു പേരെ വിചാരണ നേരിടുന്നതിനു മുൻപ് സുപ്രീം കോടതി ഒഴിവാക്കിയിരുന്നു

റോബിൻ വടക്കുംചേരിയ്ക്കെതിരെ ബലാൽസംഗത്തിനും പോക്സോ വകുപ്പുപ്രകാരവുമാണ് കേസെടുത്തത്

തിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ ബൾഗേറിയ സ്ന്ദർശിക്കുന്ന ശ്രീമതി സുഷമ രാജ്യത്തെ ഉപപ്രധാന് മൂക്ക്ത് വിദേശകാര്യമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും ഉഭ്യകക്ഷി ആഗോള പ്രശ്നങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു തുടർന്ന് മൊറോക്കോയിൽ എത്തുന്ന വിദേശകാര്യമന്ത്രി മൊറോക്കോയിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തും സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി ധാരണാ പത്രങ്ങളിൽ ഒപ്പു വയ്ക്കും തുടർന്ന് സ്പെയിനിലെത്തുന്ന ശ്രീമതി സുഷമാ സ്വരാജ് പ്രദേശിക ആഗോള വിഷയത്തിൽ രാജ്യത്തെ വിദേശകാര്യ മന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും

ഗംഗ യമുന സംഗമ ഭൂമിയിൽ നടക്കുന്ന പ്രത്യേക പൂജയിൽ പങ്കെടുക്കുന്ന ശ്രീ വെങ്കയ്യ നായിഡു അക്ഷായ്വത് സരസ്വതി ഹനുമാൻ അമ്പലങ്ങളിൽ ദർശനം നടത്തും തുടർന്ന് അദ്ദേഹം കുംഭസേവ മിത്രയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രത്യേക പരിപാടിയിൽ സംസാരിക്കും പ്രയാഗിലെ പരമാർത്ഥ് നികേതൻ ആശ്രമം സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി ഇന്ന് വൈകിട്ട് ഡൽഹിക്ക് മടങ്ങും

ടി

ഇന്നലെ എല്ലാ കോടതികൾക്കും ഇത് ് സൃഷ്ടബന്ധിച്ച ഉത്തരവിന്റെ പകർപ്പ് നൽകാൻ പരമോന്നത ക്കോട്ട്തി നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോഴും വകുപ്പ് മയപ്പെടുത്തിയിരുടിയാ്തെ അറസ്റ്റ് തുടരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി

പുരുഷ സിംഗിൾസ് ഫൈനലിൽ സൌരഭ് വർമ്മയും ലക്ഷ്യ സെന്നും തമ്മിലാണ് പോരാട്ടം

അന്ന് സൈനയ്ക്കായിരുന്നു വിജയം കഴിഞ്ഞ് വ്യർഷം ഗോൾഡ് കോസ്റ്റിൽ നടന്ന കോമൺവെൽത്ത് ശ്ദ്ധ്യിംസിലും സൈന സിന്ധുവിനെ തോല്പിച്ചിരുന്നു ക്ക്സ്ൻെന നെഹ്വാൾ ദേശീയ സീനിയർ ബാഡ്മിന്ററൺ കിര്യീട് മൂന്ന് തവണയും പി

സിന്ധു രണ്ട് തവണ്യൂർ സ്വന്തമാക്കിയിട്ടുണ്ട് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ദ്രേശീയ സീനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ട് തിട്ട്ണ് സ്വന്തമാക്കിയ സൌരഭ് വർമ്മയും ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻ ലക്ഷ്യ സെന്നും തമ്മിൽ ഏറ്റുമുട്ടും പുരുഷ വിഭാഗം ഡബിൾസ് ഫൈനലിൽ പ്രണവ് ജെറിചോപ്ര ചിരാഗ് ഷെട്ടി സഖ്യം അർജ്ജുൻ എം

വനിതാ വിഭാഗം ഡബിൾസ് കീരിടത്തിനായി മേഘ്നാ ജക്കാംപുടി പൂർവിഷ എസ് റാം സഖ്യവും ശിഖാ ഗൌതം അശ്ചിനിഭട്ട് സഖ്യവും തമ്മിലാണ് പോരാട്ടം

വോട്ടെടുപ്പ് ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കമ്മീഷന്റെ തീരുമാനം

നൈജീരിയൻ പ്രസിഡന്റ് മൊഹമ്മദ് ബുഹാരി രണ്ടാം വട്ടവും ജനവിധി തേടി ഇറങ്ങുന്നുണ്ട് സംസ്ഥാന അസംബ്ലികളിലേക്കും ഗവർണർ സ്ഥാനത്തേക്കുമുള്ള തിരഞ്ഞെടുപ്പ് അടുത്ത മാസം ഒമ്പതിനും സ്ലൂടക്കും